രാജ്യത്തൊട്ടാകെ കോപ്പിഡ് പ്രതിരോധ മരുന്ന് സൌജനൃമായി ലഭൃമാക്കുമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ

ഒഡീഷയിലെ സമ്പൽപൂരിൽ ഐഐഎം ന്റെ സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപന കർമം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ വോയ്സ് നൂതനാശയങ്ങൾ സമഗ്രത അഖണ്ഡത എന്നീ ബൃഹത്തായ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് മാനേജ്മെന്റ് എന്നും വികസനത്തിനായുള്ള പാച്ചിലിൽ പിന്നിലായി പോയവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പ്ള്ർച്ചയിലേക്കുള്ള പാത നയിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞൂ

ആത്മനിർഭർ ഭാരത് ലക്ഷ്യം മുൻനിർത്തി പ്രാദേശ്രീക്ക് ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ എത്തിക്കുന്നതിൽ മാനേജ്മെന്റ് മേഖലയിലെ വിദഗ്ദ്ധർക്ക് പ്രധാന പങ്കു വഹിക്കാനാകും കാർഷിക മേഖല മുതൽ ബഹിരാകാശ മേഖല വരെ സ്റ്റാർട്ടപ്പുകളുടെ സാധ്യതകൾ വർധിക്കുകയാണെന്നും വൻ നഗരങ്ങളിൽ നിന്നും സ്റ്റാർട്ടപ്പുകൾ ചെറിയ പട്ടണങ്ങളിലേക്ക് കൂടി സ്ഥാപിക്കപ്പെടുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യൻ ബ്രാൻഡുകളെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിന് സ്റ്റാർട്ടപ്പുകളെ കാര്യക്ഷമമായി സഹായിക്കാൻ സമയത്തിന് അതീതമായും പ്രവർത്തിക്കണം

വാക്സിനുകളുടെ സുരക്ഷയും ഫലപ്രാപ്തിയും സംബന്ധിച്ച അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു വാക്സിൻറെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉറപ്പു വരുത്തിയതിനു ശേഷമേ സർക്കാർ വാക്സിന് അംഗീകാരം നൽകു പോളിയോ തുള്ളിമരുന്ന് ആദ്യമായി വിതരണം ചെയ്യുമ്പോളും ജനങ്ങൾ മടി കാണിച്ചിരുന്നെന്നും എന്നാൽ പോളിയോ രോഗത്തിനെതിരെ പ്രതിരോധ തുള്ളിമരുന്ന് ഫലപ്രദമാണെന്ന് പിന്നീട് തെളിഞ്ഞതായും ശ്രീ ഹർഷ് വർദ്ധൻ ചൂണ്ടിക്കാട്ടി

തിരുവനന്തപുരത്ത് മൂന്ന് ക്ലേങ്ങളിലും ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലെ ഓരോ കേന്ദ്രങ്ങളിലുമായാണ് ഡ്രൈ റൺ നടന്നത്

വാക്സിൻ എടുക്കുന്നതിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും ചിട്ടയായ വാക് സിൻ വിതരണത്തിന് കേരളം സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു

പിന്നീട് വാക്സിൻ കിട്ടുന്ന അളവിൽ മറ്റുള്ളവർക്കും നൽകുന്നതാണ് വാക്സിൻ ലഭ്യമായാലുടൻ സംഭരണം വിതരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കുറ്റമറ്റ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി വൃക്തമാക്കി

ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് എറണാകുള്ളൂ ജില്ലയിലാണ്

അമേരിക്ക ബ്രിട്ടൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്

നിലവിൽ അതിർത്തിയിൽ സ്ഥിരതയുള്ള സാഹചര്യമാണുള്ളതെന്നും സൈനിക നയതന്ത്ര മാധ്യമങ്ങളിലൂടെ ഇന്ത്യയുമായി ആശയവിനിമയം തുടരാൻ ചൈന സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ മെയിലാണ് അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത് സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് ഇരുരാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും കോർപ്സ് കമാൻഡർതല ചർച്ചുകളിലൂടെ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

കൽക്കരി ഇരുമ്പയിര് ഭക്ഷ്യധാന്യങ്ങൾ വളം ധാതു എണ്ണ സിമന്റ് എന്നിവയാണ് പ്രധാനമായും റെയിൽവേയിലൂടെ കൊണ്ടുപോയത്

്തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് വിവരം കൈമാറുന്നതിന് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുതുന്നതിനും കരട് ഉത്തരവ് പ്രോത്സാഹനം നൽകുന്നു

രാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ചു പരിചയ സമ്പന്നനായ രാഷ്ട്രീയ പ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് രാഷ് ട്രപതി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ശബ്ദമുയർത്തിയ നേതാവായിരുന്നു ബൂട്ടാ സിങ് എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു

ദീർഘവീക്ഷണമുള്ള നേതാവാണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും രാജ്യത്തിന്റെ വികസ്കന്റു സ്ംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ വീക്ഷണം ഉണ്ട്ടണ്ടും ശ്രീ ജാവദേക്കർ ചൂണ്ടിക്കാട്ടി

കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് കേരളം ഏഴു മത്സരങ്ങളിൽ നിന്നും അഞ്ചു വിജയം നേടിയ മുംബൈ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്

അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു